ഐ

പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ന് തീരുവയിൽ മൂന്ന് രൂപ വർദ്ധിപ്പിച്ചു

ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു

ജപ്പാൻ തായ്ലാന്റ് അമേരിക്ക ചൈന എന്നീ രാജൃങ്ങൾക്കു ശേഷം വൈറസ് ഇനങ്ങളെ വിജയകരമായി വേർതിരിക്കാനായ അഞ്ചാമത്തെ രാജ്യമാണ് ഇന്തൃ

അടിസ്ഥാന ശാസ്ത്ര ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ ആഗോള പ്രതിസന്ധിയെ നേരിടുന്നതിന് സഹായിക്കുമെന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രപ്രതിനിധികൾ പറഞ്ഞു

ഇന്ത്യയിൽ നിന്ന് പോയ മെഡിക്കൽ സംഘം ഇവർക്ക് രോഗബാധയില്ലെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ഇവരെ നാട്ടിലേക്ക് എത്തിച്ചത് സംസ്ഥാനത്ത് കോവിഡിൽ അതിജാഗ്രത തുടരുകയാണ്

ബ്രിട്ട്ൻ ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നും വന്നവരുടെ റൂട്ട്മാപ്പാണ്ട് പ്രസിദ്ധീകരിച്ചത്

ഇതിൽ മൂന്നുപേർ നേരത്തെ രോഗം ഭേദമായവരാണ്

കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിൽസയിൽ കഴിയുന്ന വയോധികരായ ദമ്പതികളുടെ ആരോഗ്യ നില വളരെ മെച്ചപ്പെട്ടതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു

പ്രമേഹം രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നതായും ആരോഗ്യ സംഘം അറിയിച്ചു രാജ്യത്ത് ഇന്ന് അഞ്ച് പുതിയ കൊറോണ രോഗ ബാധ കൂടി സ്ഥിരീകരിച്ചു

കേരള കർണാടക ആന്ധ്രാപ്രദേശ് ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ആൾക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്

ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ഇന്നുച്ചയ്ക്ക് പുറപ്പെടും

ഇവരെ രണ്ട് ആഴ്ച നിരീക്ഷണത്തിൽ വയ്ക്കും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇ

റോം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരും യു

ജൂ വിമാനത്താവളത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകണ്മെന്ന് യു എ

സിവിൽ വ്യോമയാന അധികൃതർ അറിയിച്ചു

രോഗബാധയുടെ തോത് കുറഞ്ഞെങ്കിലും ഇത് പൂർണ്ണമായി നിയന്ത്രണവിധേയമാകുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ലെന്ന് ചൈനീസ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു അതേസമയം യൂറോപ്പിലാണ് ഇപ്പോൾ രോഗബാധ തീവ്രമായി തുടരുന്നതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു

അന്റാർട്ടിക്ക ഒഴികെയുള്ള ഭൂഖണ്ഡങ്ങളിൽ ഒരു ലക്ഷത്തി നാൽപ്പയ്യായിരം പേർ കൊറൊണയുടെ പിടിയിലാണ്

രാജ്യത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ അയ്യായിരം കോടി ഡോളർ ധനസഹായം അനുവദിക്കുമെന്ന് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പറഞ്ഞു

അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഭ്യന്തര വിദേശയാത്രകൾ ഒഴിവാക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു

വീട്ടിലിരുന്ന് ജോലിക് ചെയ്യാനുള്ള അനുമതി നൽകിയതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ലണ്ടനിൽ നവജാതശിശുവിന് കൊഴ്ട്ടോണ സ്ഥിരീകരിച്ചു കൊറോണ വൈറസ് ബാധിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണിത്

കാനഡയിലേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ ഭരണകൂടം വിലക്കി

എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില താഴുന്നതിനാൽ തീരുവ വർദ്ധന ഉപഭോക്താക്കളെ സാരമായി ബാധ്യിക്കാനിടയില്ല

രാജ്യത്തെ ജനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുളള സ്ഥിതി വിവരക്കണക്കുകളുടെ ഏറ്റവും വലിയ ഉറവിടമാണ് സെൻസസ്

മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റു ബലോത്ര ഫലോഡി ഹൈവേയിലെ സോയിൻത്തര ഗ്രാമത്തിന് സമീപത്താണ് സംഭവം അപകടത്തിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ് ലോട്ട് ദുഖം രേഖപ്പെടുത്തി

ഒ്രു ്കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്ന് നാമക്കലിലേക്ക് മടങ്ങുകിയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് പ്രിൽപകടം സംഭവസ്ഥലത്ത് എത്തിയ പോലീസിന്റെയും അഗ്നിക്ക് ശ്രമ്ന സേനയുടെയും മൂന്ന് മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് ട്രക്കിലേക്ക് ഇടിച്ചു കയറിയ കാർ പുറത്തെടുക്കാനായത് മൃതദേഹങ്ങൾ സമീപത്തെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോസ്റ്റ് മോർട്ടത്തിനയച്ചു

എസിന്റെ ത്രിദിന ഉന്നതതല സമ്മേളനം മാറ്റിവച്ചു

എസ് ജനറൽ സെക്രട്ടറി സുരേഷ് ഭയ്യാജി ജോഷി അറിയിച്ചു